മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവ്വഹിക്കും

വോട്ടെടുപ്പ് നാളെ

സി ചെന്നൈയിൻ എഫ്

യെ നേരിടും

അത്യാധുനിക രീതിയിൽ ത്രികോണാകൃതിയിൽ നിർമ്മിക്കുന്ന മന്ദിരം പരിസ്ഥിതി സൌഹൃദവും അതീവ സുരക്ഷാ സംവിധാനങ്ങൾ അവലംബിച്ചുള്ളതുമായിരിക്കും

കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്ന ഭാരത് ബയോടെക് ബയോളജിക്കൽ ഇ ലിമിറ്റഡ് എന്നീ കമ്പനികളാണ് സംഘം സന്ദർശിക്കുന്നത്

ഫൈസർ ബയോൺടെക് കമ്പനികൾ ചേർന്ന് നിർമ്മിച്ച വാക്സിനാണ് ഇന്നലെ മുതൽ കുത്തിവയ്ക്കാൻ തുടങ്ങിയത് ജനങ്ങൾക്ക് വ്യാപകമായി വാക്സിൻ നൽകുന്നതിലൂടെ കോവിഡിനെ പ്രതിരോധിക്കാനാകുമെന്ന പുതിയ പ്രതീക്ഷയാണ് ലോകത്തിന് കൈവരുന്നത്

അതേസമയം ഇന്ന് നടക്കുന്ന ചർച്ചയിൽ സർക്കാർ പുതിയ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമെന്ന് യോഗത്തിന് ശേഷം പ്രതികരിച്ച കർഷക നേതാവ് പറഞ്ഞു സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുൻ കർഷക നേതാക്കൾ പ്രത്യേക യോഗം ചേരും

രണ്ടിടത്ത് ട്രെയിൻ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു

ബന്ദിനെ തുടർന്ന് ഗതാഗത സൌകര്യം തടസ്സപ്പെടും എന്നതിനാൽ ഒഡീഷ ഗവൺമെന്റ് ഇന്നലെ ഓഫീസുകൾക്ക് അവധി നൽകിയിരുന്നു

രണ്ടാം ഘട്ടത്തിൽ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളാണ് ബൂത്തിലേക്ക് പോകുന്നത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വോട്ടെടുപ്പിനുളള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മിഷൻ അറിയിച്ചു

അവശേഷിക്കുന്ന നാല് ജില്ലകളിൽ തിങ്കളാഴ്ചയാണ് വോട്ടെടുപ്പ്

വിശ്വാസ്യതയിലൂടെ വീണ്ടെടുക്കൽ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം

അഴിമതിക്കെതിരായ പൊതുജന അവബോധം വളർത്താനും സാധ്യമായ എല്ലാ നടപടികളിലൂടെയും അഴിമതി തുടച്ചു നീക്കാനും ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നു

അഴിമതിക്കെതിരെ കൈകോർക്കാനും എല്ലാ തലങ്ങളിലും സുതാര്യത ഉറപ്പാക്കാനും അദ്ദേഹം രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു കോവിഡ് മഹാമാരിയുടെ കാലത്ത് അഴിമതിക്കുള്ള സാധ്യതകൾ വലുതാണെന്നും മാനവിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായ അഴിമതി പൊതു ജനങ്ങളോടുള്ള വിശ്വാസ വഞ്ചനയാണെന്നും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്തോണിയോ ഗുട്ടറാസ് അഭിപ്രായപ്പെട്ടു ആഗോളതലത്തിൽ പ്രതിവർഷം ഒന്നരലക്ഷം ട്രില്യൻ അമേരിക്കൻ ഡോളർ കൈക്കൂലിയായി നൽകപ്പെടുന്നുണ്ട് എന്നാണ് ഐക്യരാഷ്ട്രസഭ കണക്കുകൾ

ഇന്ത്യ കുവൈറ്റ് ഉഭയകക്ഷി ബന്ധം ഇനിയും വളരുമെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു

സോണിയാഗാന്ധിക്ക് ദീർഘായുസ്സും ആരോഗ്യവും നേരുന്നതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

എം നരവനെയുടെ യുഎഇ സൌദി അറേബ്യ സന്ദർശനം ഇന്നാരംഭിക്കും

മേഖലയിൽ സൈന്യം തിരച്ചിൽ തുടരുകയാണ്

യുപിഐ ഉള്ടപാടുകൾക്ക് അടുത്തവർഷം മുതൽ അധിക നിരക്കുകൾ ഈടാക്കുമെന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് വിശദീകരണം

എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി എഫ്

സി സ്റ്റേഡിയത്തിലാണ് മത്സരം ഇന്നലെ നടന്ന മത്സരത്തിൽ ബംഗളുരുവും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും രണ്ട് ഗോളുകൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു

തകരാറിലായ മത്സ്യബന്ധന ബോട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പലായ വരദിന്റെ സഹായത്തോടെ തീരത്ത് എത്തിച്ചിട്ടുണ്ട്

ഇരു ടീമംഗങ്ങളിലും ജീവനക്കാരിലും കോവിഡ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് തീരുമാനം പരുമ്പ്രയിലെ മൂന്ന് ഏകദിന മത്സരങ്ങൾ ഔദ്യോഗികമായി നീട്ടി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ നാല് ദിവസത്തിനിടെ മൂന്ന് തവണയാണ് പരമ്പര്യുടെ ഉദ്ഘാടന മത്സരത്തിന്റെ തീയതി പുനക്രമീകരിച്ചത്